എൽസി പരീക്ഷാഫല പ്രഖ്യാപനം നാളെ

കിംഗ്സ് ഇലവൻ പഞ്ചാബ് ചെന്നൈ സൂപ്പർ കിംഗ്സിനേയും മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനേയും നേരിടും തെരഞ്ഞെടുപ്പ് അഞ്ചാംഘട്ടം ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം സമാധാനപരമായി നടത്താൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി

അതേസമയം ആറ് ഏഴ് ഘട്ടങ്ങ ളിലേക്കുള്ള പ്രചാരണം മുൻനിര നേതാക്കളുടെ നേതൃത്വത്തിൽ ഊർജ്ജിതമായി തുടരുന്നു

വ്യാപകമായി കള്ള വോട്ട് നടന്നു വെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന വെബ് സ്ട്രീ മിംഗ് ദൃശ്യങ്ങളാണ് ജില്ലാ കളക്ടർ പരിശോധി ക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശ പ്രകാരമാണ് പരി ശോധന

ബൂത്ത് ലെവൽ ഓഫീസർമാരും വെബ് സ്ട്രീമിംഗ് നടത്തിയവരും ഹാജരാകാൻ നിർദേശം നൽകിയിട്ടുണ്ട്

ഒഡീഷ പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ അകപ്പെട്ടുപോയ മലയാളികളുടെ വിവരങ്ങൾ അറിയേണ്ടവർക്ക് ദുരന്തനിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെടാം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കൺട്രോൾ റൂം തുറന്നത് ചുഴലിക്കാറ്റിന് ഇരയായ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായും ദുരിതാശ്ചാസത്തിനുംപുനരധിവാസത്തിനും എല്ലാ സഹായവും നൽകാൻ സന്നദ്ധരാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

തോട്ടപള്ളി സ്പിൽവേയുടെയും തണ്ണീർമുക്കം ബണ്ടിന്റെയും പ്രവർത്തനം സുഗമമാക്കാനുള്ള നടപടിയാണ് പ്രധാനമായും സ്വീകരിച്ചിട്ടുള്ളത് കുട്ടനാട്ടിൽ വന്ന് ചേരുന്ന വെള്ളം ഒഴുകി പോകുന്നത് ഈ രണ്ട് മാർഗ്ഗങ്ങളിലൂടെയാണ് തോട്ടപ്പള്ളി പൊഴി മുഖത്തെ നീരൊഴുക്കിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടി മാറ്റാനും പൊഴിയിൽ അടിഞ്ഞു കൂടിയ മണൽ നീക്കം ചെയ്യാനും ടെന്റർ വിളിച്ചിട്ടുണ്ട് ഇവിടെ പൊഴിയുടെ ആഴം കൂട്ടും തണ്ണീർമുക്കം ബണ്ടിന്റെ മധ്യഭാഗത്തുള്ള മണൽച്ചിറ നീക്കം ചെയ്യാൻ ജല വിഭവ വകുപ്പ് നടപടി ആരംഭിച്ചു

ഹാൾടിക്കറ്റിനൊപ്പം ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും ഹാൾടിക്കറ്റിലുള്ള അതേ ഫോട്ടോയും കരുതണം പാലക്കാട് സെന്റ് മേരീസ് പോളിടെക്നിക്കിലെ പരീക്ഷാകേന്ദ്രവും ആലപ്പുഴ പള്ളിപ്പുറം സി ആർ

എഫ് പരീക്ഷാകേന്ദ്രവും മാറ്റിയിട്ടുണ്ട് ഈ കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികൾ പുതിയ അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യണം ഉച്ചയ്ക്ക് ഒന്നരയോടെ പരീക്ഷാ കേന്ദ്രങ്ങളിലെ ഗേറ്റ് അടയ്ക്കും

എസ്

സി പരീക്ഷാഫലം നാളെ ഉച്ചയ്ക്ക് രണ്ടിന് പ്രഖ്യാപിക്കും

ഫലപ്രഖ്യാപന ത്തിനുശേഷം കൈറ്റ് പരീക്ഷാഭവൻ പി ആർ ഡി എന്നിവയുടെ വെബ്സൈറ്റിലും സഫലം പി ആർ ഡി ലൈവ് എന്നീ മൊബൈൽ ആപ്പുകളിലും പരീക്ഷാ ഫലം ലഭ്യമാകും

ഇന്ന് പുലർച്ചെയാണ് സംഭവം പട്ടിമറ്റം സ്വദേശിയായ ് സജി ഭാര്യ ബിന്ദുവിനെയും ഒന്നരവയ സ്സുള്ള മകൻ ശ്രീഹരിയെയും തീകൊളുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതേസമയം ഗുരുതരമായി പൊള്ളലേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബിന്ദുവിന്റെ മാതാവ് ആനന്ദവ ല്ലിയും മരണമടഞ്ഞതായാണ് റിപ്പോർട്ട് ഹോട്ടൽ ജീവനക്കാര നാണ് സജി

പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി

വേനൽ ചൂടിൽ ജലസേചന സൌകര്യമില്ലാത്ത ക്രകരിമ്പിൻ പാടങ്ങളാണ് കരിഞ്ഞുണങ്ങുന്നത്

മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ കാറിൽ കടത്തുകയായിരുന്ന ആയിരം കിലോയോളം ഹാൻസ് പിടികൂടി മലപ്പുറം സ്വദേശികളായ സിറാജുദ്ദീൻ മുഹമ്മദ് സലിം ഫൈസൽ എന്നിവരാണ് പിടിയിലായത് കൊല്ലത്ത് യാചകവേഷത്തിൽ ആന്ധ്രയിൽ നിന്നും ട്രെയിനിൽ കഞ്ചാവ് കടത്തുന്നയാൾ അഞ്ച് കിലോ കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലായി നഗരൂർ സ്വദേശി ഷാനവാസാണ് പിടിയിലായത്

അതേസമയം റംസാൻ മാസപ്പിറവി സംബ്ലൂന്ധിച്ച് ഏകീകൃത തീരു മാനം എടുക്കുന്നതിന് വിവിധ ജമ്മൃത്ത്തുകളിലെ ഇമാമുമാർ തിരുവനന്തപുരം പാളയം ജും ്ട്ആ മ്സ്ജിദിൽ ഇന്ന് വൈകിട്ട് യോഗം ചേരും തുടർന്ന് മാസപ്പീറവി സംബന്ധിച്ച പ്രസ്താവന പുറപ്പെടുവിക്കുമെന്ന് പാളിയ്ക്ക് ഇമാം മൌലവി സുഹൈബ് വി

വൈകിട്ട് അഞ്ചിന് സാംസ് കാരിക സമ്മേളനം നടക്കും

വി

അറയ്ക്കൽ ഭരണാക്രികാർ അറയ്ക്കൽ മ്യൂസിയ ത്തിന്റെ രക്ഷാധികാരി കൂടിയാണ്ക രമേശ് ചെന്നിത്തല കാഷ്യൂ ബോർഡിന്റെ കശുവണ്ടി ഇടപാടിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഗുരുതരമായ ക്രമക്കേടുകളാണ് തോട്ടണ്ടി വാങ്ങിയതിൽ അരങ്ങേറിയിരിക്കുന്നത് ഗുണനിലവാരം കുറഞ്ഞ തോട്ടണ്ടി കൂടുതൽ വിലയ്ക്ക് വാങ്ങിയതാണ് ഭീമമായ നഷ്ടത്തിന് കാരണമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു

എൽ ക്രിക്കറ്റിൽ ഇന്നത്തെ രണ്ടു മത്സരങ്ങളോടെ ഈ എഡിഷനിലെ ലീഗ് റൌണ്ട് പോരാട്ടങ്ങൾക്ക് അവസാനമാകും ഇന്ന് നടക്കുന്ന ആദ്യമത്സരത്തിൽ കിംഗ്സ് ഇലവൻ പഞ്ചാബ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ നേരിടും രാത്രി എട്ടിന് മുംബൈ ഇന്ത്യൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ ഏറ്റുമുട്ടും മുംബൈ വാങ്കഡൈ സ്റ്റേഡിയത്തിലാണ് മത്സരം ചെന്നൈ മുംബൈ ഡൽഹി എന്നിവ പ്ലേ ഓഫിൽ ഇടം പിടിച്ചിട്ടുണ്ട്

തിരുവന്ത്പുരത്ത് അരുവിക്കര ജി